സ്കൂൾ പ്രിൻസിപ്പൽ എ കെ കരുണാകരൻ പ്രധാന അധ്യാപകൻ കെ കെ മോഹനൻ അധ്യാപകൻ സി വി ഷജിൽ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ജിസ മെറിൻ ജോയ് എന്നിവർക്കെതിരെയാണ് കേസ് പ്രിൻസിപ്പലിനെയും വൈസ് പ്രിൻസിപ്പ ലിനെയും പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷണ വിധേയമായി സസ്പെന്റ് ചെയ്തിരുന്നു

അധ്യാപക പരിശീലനങ്ങളുടെ ഭാഗമായി പ്രഥമ ശുശ്രൂഷയിൽ പരി ശീലനം നൽകാനും യോഗം തീരുമാനിച്ചു ദർവ്വെട്ടറ ബത്തേരിയിൽ വിദ്യാർത്ഥിനി പാമ്പുകടിയേറ്റ് മരിച്ച പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങളും പരിസരപ്പും വൃത്തിയായി സംര ക്ഷിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി

എ മീറ്റിംഗ് അടിയന്തിരമായി വിളിച്ചു ചേർക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ക്സാസ്മുറികൾ ചുറ്റുമതിലുകൾ ശുചിമുറി കൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ദ്വാരങ്ങളോ വിള്ളലുകളോ ഉണ്ടെങ്കിൽ അടു ത്തമാസം അഞ്ചിനകം സിമന്റും മണലും ഉപയോഗിച്ച് അടച്ച് സുരക്ഷ ഉറ പ്പാക്കണം സ്കൂൾ പരിസരത്ത് കൂട്ടിയിട്ട പാഴ്വസ്തുക്കൾ ഉടൻ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ക്സാസുകളിൽ വിദ്യാർത്ഥികൾ പാദരക്ഷ ഉപയോഗിക്കുന്നത് വിലക്കരുതെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേ ശിച്ചു

എസ് സുനിൽകുമാർ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ ഇന്ന് സന്ദർശിക്കും കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യു

എഫ് ബത്തേരി പൊലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ നടത്തുന്ന മാർച്ച് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും രുട്ട്ട്ട്ട്ട്ട്ട്ട പാമ്പുകടിയേറ്റ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് വയനാട് ജില്ലാ ശിശുക്ഷേമ സമിതി ആവശ്യപ്പെട്ടു കുട്ടിക്ക് അടിയന്തിര ചികിത്സ ലഭൃമാക്കുന്ന കാരൃത്തിൽ സ്കൂൾ അധികൃതർക്കും ആശുപത്രി അധികൃതർക്കും വീഴ്ച സംഭവിച്ചതായി സമിതി കണ്ടെത്തി

വൃവസായം ടൂറിസം വിദ്യാഭ്യാസം ഫിഷറീസ് മേഖലക ളിലെ സാമ്പത്തിക സാങ്കേതിക വിജ്ഞാന സഹകരണം ലക്ഷ്യമാക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം യാത്ര തിരിക്കുന്നത്

മന്ത്രിമാരായ ഇ പി ജയരാജൻ എ കെ ശശീന്ദ്രൻ ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ വി

ജപ്പാൻ ഗവൺമെന്റിലെ മന്ത്രി മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും

തിരുവനന്തപുരത്ത് മുഖ്യ മന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പ്രത്യേക അക്കൌണ്ടിലേക്ക് തുക കൈമാറിയത്

അതോറിറ്റി പ്രതിനിധികൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിലാണ് നിക്ഷേപ സാധ്യത തെളിഞ്ഞത്

സംസ്ഥാനത്ത് നിക്ഷേപ സൌഹൃദമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ന പറഞ്ഞു രുട്ട്ട്ട്ട്ട്ട്ട്ട്ട കോഴിക്കോട് വയനാട് ജില്ലകളിലെ ടൂറിസം സാധൃതകൾ ഉപയോഗ പ്പെടുത്തുന്നതിനായി താമരശേരി ചുരത്തിന് സമാന്തരമായി റോപ്വേയിലൂടെ കേബിൾ കാർ പദ്ധതി തയ്യാറാക്കും

രദ്ദേഷ്ടങ മഹാരാഷ്ട്രയിൽ ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വ ത്തിൽ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുമെന്ന് എൻ

പി അധ്യക്ഷൻ ശരത് പവാർ അറിയിച്ചു മുംബൈയിൽ കോൺഗ്രസ് എൻ

പി ശിവസേനാ നേതാക്കളുടെ യോഗത്തിന് ശേഷം താക്കറെയെ മുഖ്യമന്ത്രിയാക്കുന്ന കാര്യ ത്തിൽ അഭിപ്രായ ഐക്യം ഉണ്ടായതായി പവാർ പറഞ്ഞു എല്ലാ കാര്യങ്ങളും അന്തിമമായി തീരുമാനിച്ച ശേഷം ഇന്ന് പ്രഖ്യാപനമുണ്ടാകു മെന്നും പവാർ പറഞ്ഞു അതേസമയം ഗവൺമെന്റ് രൂപീകരണ കാര്യത്തിൽ ചർച്ചകൾ പൂർത്തിയായിട്ടില്ലെന്ന് എ

ചർച്ച ഇന്നും തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു

ദർവ്വെട്ടറ ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നിലവിലെ ചാമ്പ്യൻമാരായ ബംഗളുരു എഫ് സിയെ നേരിടും രാത്രി ഏഴരയ്ക്ക് ബംഗ ളുരുവിലാണ് മത്സരം

ഇന്ന് കേരളം ആന്ധ്ര്യെ നേരിടും

ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ആദ്യ സീസണിന്റെ ഫൈ നൽ എന്ന നിലയ്ക്കാണ് ഇത്തവണ പ്രസിഡന്റ് സ് ട്രോഫി ജലോത്സവം ന ടക്കുന്നത് ഒമ്പത് ചുണ്ടൻവള്ളങ്ങൾ മത്സരിക്കും വെപ്പ് എ ഗ്രേഡ് ഇരുട്ടുകുത്തി എ ഗ്രേഡ് തെക്കനോടി വനിത എന്നീ വിഭാഗങ്ങളിലും മത്സ രങ്ങൾ നടക്കും ഉച്ചയ്ക്കുശേഷം മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ജ ലോത്സവം ഉദ്ഘാടനം ചെയ്യും ദർവ്വെട്ടറ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ കായികമേളക്ക് തിരുവനന്തപുരം കാര്യവട്ടത്ത് ഇന്ന് തുടക്കമാകും

പി വിഭാഗത്തിൽ തലശേരി സൌത്ത് ഉപജില്ലകളാണ് മുന്നിൽ കലോത്സവം ഇന്ന് സമാപിക്കും

ഹൈസ്കൂൾ വിഭാഗത്തിൽ കൊയിലാണ്ടി രണ്ടാം സ്ഥാനവും ചേവായൂർ മൂന്നാം സ്ഥാനവും നേടി

തോടന്നൂർ മൂന്നാമതെത്തി

മങ്കട രണ്ടാം സ്ഥാനത്തും വേങ്ങര മൂന്നാം സ്ഥാനത്തുമുണ്ട്

തൃശൂർ ഈസ്റ്റ് രണ്ടാം സ്ഥാനവും ചാലക്കുടി തൃശൂർ വെസ്റ്റ് ഉപജില്ലകൾ മൂന്നാം സ്ഥാനവും പങ്കിട്ടു

പി വിഭാഗത്തിൽ ആല പ്പുഴ ഉപജില്ലയും ഹൈസ്കൂൾ വിഭാഗത്തിൽ കായംകുളം ഉപജില്ലയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചെങ്ങന്നൂർ ഉപജില്ലയും ജേതാക്കളായി

ചാരും മൂട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർഥി എസ് നവനീത് ആണ് ഇന്നലെ മരിച്ചത് മുതിർന്ന കുട്ടി കൾ ക്രിക്കറ്റ് കളിക്കുന്നതിനിടെയായിരുന്നു സംഭവം സംസ്കാരം ഉച്ചക ഴിഞ്ഞ് വീട്ടുവളപ്പിൽ നടക്കും പുറപ്പെട്ടത്ത കൂടത്തായി കൊലപാതക പരമ്പരക്കേസ് പ്രതി ജോളിയെ വ്യാജ ഒസ്യത്ത് ഉണ്ടാക്കാൻ സഹായിച്ചെന്ന് ആരോപണമുയർന്ന സി

ഐ എം മുൻ ലോക്കൽ സെക്രട്ടറിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു

ഐ എം കട്ടാങ്ങൽ സ്റ്റോക്കൽ സെക്രട്ടറിയായിരുന്ന കെ മനോജ്കുമാ റാണ് അറസ്റ്റിലായത് അന്നമ്മ വധക്കേസിൽ ജോളിയെ ജന്മനാടായ കട്ടപ്പ നയിൽ കൊണ്ടുപോയി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും

രാവിലെ സ്വാശ്രയ ഭാരത് ശാസ്ത്ര എക്സിബിഷന്റെ പതിനൊന്നാമത് പതിപ്പ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും വൈകീട്ട് അമിത്ഷാ ആന്റ് ദി മാർച്ച് ഓഫ് ബി ജെപി എന്ന പുസ്തകത്തെ സംബന്ധിച്ച് നട ക്കുന്ന സംവാദത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും

ഇന്ന് വൈകീട്ട് കേന്ദ്രമന്ത്രി അർജുൻ റാം മെഖ്വാൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കുന്ന എല്ലാ ഗോഡൌണുകളിലും സി സി ടിവി സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു

പാലക്കാട് ഓങ്ങല്ലൂരിൽ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിന്റെ ശി ലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഗ്രമന്ത്രി രദേവ്ട്ട്ട്ട്ട്ട്ട വൈദ്യുതി വിതരണ മേഖലയിലെ പരാതി പരിഹാരത്തിനായി ജനകീയ വൈദ്യുതി അദാലത്ത് നടത്തുമെന്ന് മന്ത്രി എം

തിരുവനന്തപുരത്ത് ഊർജ്ജ കേരള മിഷന്റെ ഭാഗമായ ദ്യുതി പദ്ധതി അവലോകന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വില്ലേജ് ഓഫീസുകളിൽ സാധാരണക്കാരുടെ അവകാശങ്ങൾ നിഷേ ധിക്കരുതെന്നും മാനുഷിക സേവനം അർഹിക്കുന്നവർക്ക് സേവനം ഉറപ്പാ ക്കണമെന്നും മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു മലപ്പുറം മൂർക്കനാട് വില്ലേജ് ഓഫീസിന്റെയും ജീവനക്കാരുടെ വീടുകളുടെയും കെട്ടിടോദ്ഘാടനം നിർവ ഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ദർവ്വെടു ശബരിമല സീസൺ പ്രമാണിച്ച് ആർദ്രം ജനകീയ കൃാമ്പയിനിന്റെ ഭാഗ മായി എല്ലാ ജില്ലകളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രത്യേക സ്കാഡുകൾ പരിശോധന നടത്തി